നിരന്തരമായ ഉന്നതതല ഉഭയകക്ഷി ചർച്ചകൾ ഇന്ത്യാ നേപ്പാൾ ബന്ധം ഊഷ്മളമാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ജെ

വ്യാപിപ്പിക്കുന്നതിന്റ് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര പെട്രോളീയ്ർ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ

പൌരാണിക ഇന്ത്യൻ വിജ്ഞാനം എന്നിവയിലൂടെ നിരവധി സമകാലിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്

നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഹ അധ്യക്ഷനും പ്രധാനമന്ത്രിയുമായ പുഷ്പ കമൽ ദഹലുമായി ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രി ഇത് വൃക്തമാക്കിയത് ദഹലുമായി മുമ്പു നടന്ന കൂടിക്കാഴ്ചകൾ അനുസ്മരിച്ച ശ്രീ മോദി ഇന്ത്യ നേപ്പാൾ ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾക്ക് നന്ദി രേഖപ്പെടുത്തി

അധ്യക്ഷൻ അമിത്ഷാ എന്നിവർ സംയുക്തമായാണ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പാർട്ടിയുടെ ്ട്രദ്ദേശീയ സംസ്ഥാന തലങ്ങളിലെ നിർവഹക് സമിതി അംഗ്ലങ്ങളാണ് രണ്ടു ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുക

ജെ

നേതാവ് എൽ

ഒഅദാനി കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് അരുൺ ജയ്റ്റ്ലി സുഷമ സ്വരാജ് നിതിൻ ഗഡ്ഗരി എന്നിവരും മറ്റ് മുതിർന്ന് നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും

ന്യൂഡൽഹിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഗതാഗത ഉച്ചകോടിയിൽ സുസ്ഥിര ഗതാഗതം എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാവിയിലെ ഗതാഗത സംവിധാനങ്ങൾ പരിസ്ഥിതി സൌഹൃദവും കുറഞ്ഞ ചെലവിലുള്ളതു മാക്കാൻ ലക്ഷ്യമിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം ഇന്തൃയിൽ ഇപ്പോഴും പ്രധാന ഗതാഗത സംവിധാനമായി വർത്തിക്കുന്നത് പൊതുഗതാഗത സംവിധാനമാണ്

ഇന്തൃയിലടക്കം പെട്രോൾ ഡീസൽ ഉപഭോഗം പ്രതിവർഷം അഞ്ച് ശതമാന വർദ്ധന രേഖപ്പടുത്തുന്നു

മാനവ വിഭവശേഷി വികസന മന്ത്രി പ്രകാശ് ജാവദേക്കർ ഉച്ചകോടിയുടെ നാലാമത് പതിപ്പ് ഉദ്ഘാടനം ചെയ്തു അംഗീകാരവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളും അവസരങ്ങളും എന്നതാണ് ത്രിദിന സമ്മേളനത്തിലെ പ്രധാന ചർച്ചാ വിഷയം നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷന്റെ നേതൃത്വത്തിൽ രണ്ടുവർഷത്തിലൊരിക്കലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള അംഗീകാരം സംബന്ധിച്ച വിഷയത്തിൽ തങ്ങളുടെ വിജ്ഞാനവും അറിവും പങ്കുവയ്ക്കാനുള്ള ഒരു വേദിയാണ് ഉച്ചകോടിയിലൂടെ ലക്ഷ്യമിടുന്നത്

തുടർന്ന് പൊലീസ് ് നട്ടത്തീയ പ്രത്യാക്രമണത്തിലാണ് ഭീകരൻ കൊല്ലപ്പെട്ടത് അചാബ്ബൂൽ മേഖലയിൽ ആയുധം തട്ടിയെടുത്ത് രക്ഷപ്പെടാനുള്ള ഒരു സ്ത്ര്ഘം ഭീകരരുടെ ശ്രമമാണ് പൊലീസ് തകർത്തത് കുറച്ച് സമയ്ം നീണ്ടു നിന്ന വെടിവെപ്പിൽ കുൽഗാം ജില്ലയിലെ ചാരിപ്പോറ മേഖലയിൽ നിന്നുള്ള ് ഭീകരനാണ് കൊല്ലപ്പെട്ടത് ഒരു പൊലീസുകാരന് പരിക്കേറ്റു

എസ്

എൽ

എസ് എൻ എൽ പൂർത്തിയാക്കി

വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഡൽഹിയിൽ ഈ അധ്യയന വർഷം പഠനത്തിനെത്തിയ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

ചെക്ക് റിപ്പബ്ലിക് തലസ്ഥാനമായ പ്രേഗിൽ ചാൾസ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയായി രുന്നു അദ്ദേഹം

ഇന്ത്യയുടെ പ്രൌഢമായ ഭൂതകാലം ആധുനികതയെ പുൽകുമ്പോഴും സ്വന്തം വേരുകളിൽ ഉറച്ചു നിൽക്കാൻ രാജ്യത്തെ സഹായിക്കുന്നു യോഗയ്ക്കും ആയുർവേദത്തിനും ചെക്ക് റിപ്പബ്ലിക്കിൽ ലഭിക്കുന്ന സ്വീകാര്യതയിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു ചാൾസ് യൂണിവേഴ്സിറ്റിയുമായി രവീന്ദ്രനാഥ ടാഗോറിനുണ്ടായിരുന്ന ബന്ധം ശ്രീ

സംസ്കൃത് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഭാഷകളിലെ രചനകളെ മനസ്സിലാക്കാന്മൂർ പ്പതിഭാഷപ്പെടുത്താനുമുള്ള ചാൾസ് യൂണിവേഴ്സിറ്റിയിലെ ഫ്ണ്ഡിത്ന്മാരുടെ ് പരിശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു

ചെക്ക് റിപ്പബ്ലിക് കൂടാത്ത് സൈപ്രസ് ബൾഗേറിയ എന്നീ രാജ്യങ്ങളും ശ്രീ കോമ്പീന്ദ് സന്ദർശിച്ചിരുന്നു ഊർജ്ജം പരിസ്ഥിതി വിനോദസഞ്ചാരം വാണ്ണിജ്യം പ്രതിരോധം എന്നീ മേഖലകളിൽ നിരവധി ധാരണാ പത്രങ്ങളിൽ ഒപ്പുവച്ചതായി ഈ രാജ്യങ്ങങ്ങളുടെ ചുമതലയുള്ള വിദേശകാര്യ സെക്രട്ടറി രുചി ഘനശ്യാം പ്രേഗിൽ പറഞ്ഞു

ബന്ദ് പ്രഖ്യാപനത്തോട് രാഹുൽ ഗാന്ധിയും മായാവതിയും പുലർത്തുന്ന മൌനം ഇരുവിഭാഗത്തെയും തൃപ്തിപ്പെടുത്താനുദ്ദേശിച്ചാണെന്നും അദ്ദേഹം ആരോപിച്ചു

പ്രളയം മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ എന്നീ കാരണങ്ങളാൽ മേൽമണ്ണ് ഒലിച്ചുപോയതാണ് പ്രളയാനന്തരം കിണറുകളും പുഴകളും വറ്റാൻ കാരണമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ജലവിതാനത്തിലു ണ്ടാകുന്ന കുറവ് വരൾച്ചയിലേക്ക് നയിക്കാമെന്നും ഈ രംഗത്തെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്

പ്രളയ സമയത്തു ണ്ടായ ശക്തമായ ഒഴുക്കാണ് ഈ പ്രതിഭാസത്തിന് കാരണമെന്ന് വിദഗ്ധർ പറയുന്നു വെളളത്തെ ഭൂമിയിൽ തങ്ങി നിർത്തുന്ന മേൽമണ്ണിന്റെ ഭാഗം ഒലിച്ചുപോയതോടെ വെളളം പൊടുന്നനെ ചോർന്ന് പോകുന്നതാണ് വരൾച്ചയുടെ ഒരു കാരണം പുഴകളുടെ തീരമിടിഞ്ഞ് താഴ്ന്നതും ഈ പ്രതിഭാസത്തിന് ശക്തി പകരുന്നതായി ഈ രംഗത്തെ വിദഗ്ധർ ചുണ്ടിക്കാട്ടുന്നു

ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒരു വിക്കറ്റിന് ആറ് റൺസ് എന്ന നിലയിലാണ്

കനത്ത മഴ വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം

ഉൾനാടുകളിൽ കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുണ്ട്

ഭദ്രക്ക് കേന്ദ്രപ്പാദ സുന്ദർഗഡ് കണ്ഡമാൽ ജില്ലകളിലെ സ്കൂളുകൾക്ക് ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചു

അവധി ആനുകൂല്യങ്ങളും ശമ്പള വർദ്ധനയും ആവശ്യപ്പെട്ടാണ് സമരം ആവശ്യങ്ങൾ പരിഗണിക്കാമെന്നും ജോലിയിൽ പ്രവേശി ക്കണമെന്നും ജീവനക്കാരോട് ഗവൺമെന്റ് അഭ്യർത്ഥിച്ചു

വ്യോമയാന വ്യവസായവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും നൂതന ആശയങ്ങളും വ്യോമയാന മേഖലയിലെ വികാസ പരിണാമങ്ങളും കൈമാറാനുള്ള അതുലു അവസരമാണ് മേളയെന്ന് പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താ കുറിപ്പിൽ പറയുന്നു ഗാർഹിക വ്യോമയാന വൃവസായത്തിനും മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്കും ഇത് കരുത്തുപകരുമെന്നും പത്രക്കുറിപ്പ് പറയുന്നു അഞ്ച് ദിവസത്തെ പ്രദർശനത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യോമയാനരംഗത്തെ വിദഗ്ധരും പ്രമുഖ വൃവസായികളും നിക്ഷേപകരും പങ്കെടുക്കും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വ്യോമയാന സാങ്കേതിക പ്രദർശനമാണ് എയ്റോ ഇന്ത്യ എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പ്രദർശനത്തിന്റെ വേദി മാറ്റുമെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിടുന്നതാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താ കുറിപ്പ്